തുടങ്ങുമെന്ന് പ്രധാനമന്ത്രി

കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് പുതിയ അക്കാദമിക് വർഷത്തിൽ പ്രപ്പേശ്നം നൽകുന്നത് തടഞ്ഞു

അധ്യാപകനിയമനവുമായി ബന്ധപ്പെട്ട് പൂനൈയിലെ ന് നാഷണൽ ഡിഫൻസ് അക്കാഡമി പ്രിൻസിപ്പലിനും ചില പ്രൊഫസർമാർക്കും അധ്യാപകർക്കുമെതിരെ സി ബി ഐ കേസെടുത്തു

ഗാർബെയിൻ മുഗുരിസ രണ്ടാം നമ്പർ താരം മരിയ ഷറപ്പോവയെ പരാജയപ്പെടുത്തി

എല്ലാ പുറ്റര്ൻമാർക്കും താങ്ങാവുന്ന വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുകയാണ് ഗ്രവൺമെന്റിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു

ഹൃദ്രോഗത്തിനുള്ള സ്റ്റെന്റുകൾ ഡയാലിസിസ് മരുന്നുകൾ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ പ്രമേഹം ഹൃദ്രോഗം എന്നിവയ്ക്കുള്ള മരുന്നുകൾ തുടങ്ങിയവയാണ് ജൻഔഷധി കേന്ദ്രങ്ങൾ വഴി കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്നത്

ഈപരിശോധനയിൽ കോളേജുകളിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതകൾ ഉള്ളതായി മെഡിക്കൽ കൌൺസിൽ ചൂണ്ടിക്കാട്ടി

കൂടുതൽ വിവരങ്ങളുമായി സുനീഷ്

ഡി എസ്മാരുടെ കുറഞ്ഞ വേതനം പതിനായിരം രൂപയായാണ് ഉയർത്തിയത്

സമയബന്ധിത കണ്ടിന്യൂവിറ്റി അലവൻസ് സ്പാബുകൾ എന്നിവയും പരിഷ്കരിച്ചിട്ടുണ്ട് ഇതോടെ ജി ഡി എസുമാർ ബ്രാഞ്ച് പോസ്റ്റ്മാസ്റ്റർ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ്മാസ്റ്റർ എന്നിങ്ങനെ രണ്ട് വിഭാഗത്തിന്റെ കീഴിലാകും

ഡി എസ് മാരുടെ ജോലി സമയം ചുരുങ്ങിയത് നാല് മണിക്കൂറും പരമാവധി അഞ്ച് മണിക്കൂറുമായി നിജപ്പെടുത്തി

ഡി

കമലേശ്വർ ചന്ദ്ര സമിതി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ജി ഡി എസ് മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ കേന്ദ്രം തീരുമാനിച്ചത് ഇതോടെ തപാൽ ജീവനക്കാർ നടത്തി വന്ന സമരം അവസാനിപ്പിച്ചതായി സംഘടനാ നേതാക്കൾ അറിയിച്ചു ന്യൂസ്ഡെസ്ക് ആകാശവാണി

ചൌക്കിബാൽ വനത്തിലെ കേരൻ പ്രവിശ്യയിൽ നു്ഴഞ്ഞുകയറ്റക്കാർക്കെതിരെ നടത്തിയ വെടിവെയ്പ്പിലാണ് പരിക്കേറ്റത്

ഒരു പോലീസുകാരന് പരിക്കേറ്റു ഖർസാവൻ ജില്ലയിലെ ദാൽബാഗാ ആർകി പ്രദേശത്ത് ഇന്ന് പുലർച്ചെയായിരുന്നു ഏറ്റുമുട്ടൽ മാവോയിസ്റ്റുകളുമായുണ്ടായ വെടിവെയ്പ്പിലാണ് ജവാൻ കൊല്ലപ്പെട്ടത്

എഫിന്റെ കോബ്റാ ബറ്റാലിയനും ജാർഖണ്ഡ് പോലീസും സംയുക്തമായി തെരച്ചിൽ നടത്തുന്നതിനിടെയായിരുന്നു സംഭവം

ഉജ്ജയ്നിൽ നിന്ന് മടങ്ങുകയായിരുന്ന തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത്

ബി

ഓഫീസുകളിലും പ്രതികളുടെ വീടുകളിലും നടത്തിയ തിരച്ചിലുകളിൽ ഒട്ടേറെ രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞതായി സി

ഐ വക്താവ് ആർ

ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി ആകാശവാണിയുടെ ന്യൂസ് സർവ്വീസസ് ഡിവിഷൻ മോദി ഗവൺമെന്റിന്റെ നാല് വർഷങ്ങൾ എന്ന പേരിൽ ഒരു പരിപാടി അവതരിപ്പിക്കുന്നു

ഈ വർഷത്തെ അമർനാഥ് യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങളും താഴ്വരയിലെ സുരക്ഷാ സ്ഥിതിഗതിയും ശ്രീ രാജ്നാഥ് സിംഗ് അവലോകനം ചെയ്യും റംസാൻ മാസത്തിൽ ഭാരതം പ്രഖ്യാപിച്ച വെടിനിർത്തലിന് ശേഷമുള്ള സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തും

വോഹ്റ മുഖ്യമന്ത്രി മെഹ്ബൂബ മുഫ്തി ഉന്നത പോലീസ് അർദ്ധ സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായും ആഭ്യന്തരമന്ത്രി ചർച്ച നടത്തും ശ്രീനഗറിൽ നടക്കുന്ന കായിക സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും

ഇന്നലെ കേന്ദ്ര ആരോഗ്പ് മന്ത്രാലയമാണ് ഇക്കാര്യം പുറത്തുവിട്ടത്

മാതൃ മരണ നിരക്ക് ഗണ്യമായി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലെത്താൻ സാധിച്ചതായി ആരോഗ്യമന്ത്രി ജെ

സ്വാതന്ത്യം നേടിയെടുക്കുന്നതിൽ ഇന്ത്യൻ വംശജരായ ദക്ഷിണാഫ്രിക്കക്കാരുടെ പങ്കിനെയും മന്ത്രി പ്രശംസിച്ചു ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും സമാധാനത്തിനും ക്ഷേമത്തിനും വികസനത്തിനുമായി ഒരുമിച്ച് നിന്ന് പോരാടുന്ന രാജ്യങ്ങളാണെന്നും ശ്രീമതി സുഷമ സ്വരാജ് പറഞ്ഞു

ചൈനയിലെ അമേരിക്കൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ദുരൂഹരോഗം ബാധിച്ചതിനെ തുടർന്നാണ് തീരുമാനം

അതിനടുത്ത ദിവസം യു എസ് പ്രസിഡന്റ് നാട്ടിലേക്ക് മടങ്ങും

ഐ എഫ്